മുൻ രാഷ്ട്രപതി എ പ്പി ജ്ട് അബ്ദുൾ കലാമിന് ജന്മവാർഷിക ദിനത്തിൽ ്രാജ്യം സ്മർണാഞ്ജലി അർപ്പിച്ചു

ഇരുഭാഗത്തും മല തുരന്നാണ് നിർമാണം തുടങ്ങിയത് അതിദുഷ്കരമായ പദ്ധതിയാണ് സോജില തുരങ്ക നിർമ്മാണമെന്ന് മന്ത്രാലയം അറിയിച്ചു

സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാലക്കാട് കുമരനെല്ലൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നടന്നു സമൂഹത്തിന്റെ നാനതുറയിലുള്ളവർ വിശ്വമാനവികതയുടെ കാവ്യപ്രതിഭക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു

മനുഷൃസ്നേഹത്തിന്റെ മഹാഗാഥകളെന്നു വിശേഷിപ്പിക്കാവുന്ന കവിതകളെഴുതിയ അക്കിത്തം ഒരു യഥാർത്ഥ ഗാന്ധിയൻ സാമൂഹിക പരിഷ്കർത്താവ് പത്രപ്രവർത്തകൻ ലാളിതൃത്തിന്റെ എന്നിവയുമായിരുന്നു

അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

ജെ അബ്ദുൽ കലാമിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ അർപ്പിച്ചു രാഷ്ട്രപതി എന്ന നിലയിലും ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സേവനം രാഷ്ട്രത്തിന് മറക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

എന്നാൽ ശ്വസിക്കുമ്പോൾ പുറത്തുവരുന്ന അതിസൂക്ഷ്മ കണങ്ങളും ശൈത്യകാലത്ത് കൊറോണ വൈറസ് അതിവേഗം പകരാൻ കാരണമാകുമെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്

കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ്ര നിലവിൽ പിന്തുടരുന്ന സാമൂഹിക അകല മാനദണ്ഡിങ്ങൾ ശൈത്യകാലത്ത് ഫലപ്രദമാകില്ല എന്നാണ് പുതിയു പ്രിനങ്ങൾ പറയുന്നത് നാനോ ലെറ്റേഴ്സ് എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നിൽപ്പ സാമൂഹിക അകലത്തിനായി നിലവിൽ നിർദേശിച്ചിരിക്കുന്ന ആറടിയേക്കാൾ ദൂരത്തിൽ ശ്വാസകണങ്ങൾ സഞ്ചരിക്കും എന്നാണ് അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മത്സ്യമാംസാദികൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശീതീകരിച്ച മുറികളിൽ ഉൾപ്പെടെ ഇത്തരം കണങ്ങൾ നിലത്ത് പതിക്കുന്നതിന് മുൻപായി ഇരുപതടിയോളം സഞ്ചരിക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഏതാനും മിനിറ്റുകൾ മുതൽ ഒരു ദിവസത്തിലേറെ വരെ വൈറസിന് സജീവമായിരിക്കാൻ സാധിക്കും

അതേസമയം ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയിൽ ശ്വാസ കണികകൾ വേഗത്തിൽ ബാഷ്പീകരിച്ചു പോകുമെന്നും പഠനത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അകലങ്ങളുടെ പുതിയ സങ്കള്പ്പെട് എന്ന വിഷയത്തിൽ നടന്ന ലാറ്റിനമേരിക്കൻ കരീബിയ്ടൻ ് സ്െഷനിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം

ഏഴ് വൻ ഉൽപാദന പാർക്കുകൾ രാജ്യത്തുടനീളം മരുന്ന് സ്ഥാപിക്കാനുള്ള പദ്ധതികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചതായും മന്ത്രി പറഞ്ഞു

ജല ടാക്സിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു

ഔഷധ നിർമാണ മേഖലയിൽ ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള സാധ്യതയും നേതാക്കൾ ചർച്ച ചെയ്തു

എൽ ക്രിക്കറ്റിൽ ദോയുൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് ഇലവൻ പഞ്ചാബ്പും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡീയത്തിലാണ് മത്സരം ടോസ് നേടിയ ബംഗളൂരു ബാറ്റിങ് തെർഞ്ഞെടുത്തു

മരുന്നുകൾ സൌന്ദര്യ ഉൽപന്നങ്ങൾ വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ വ്യാവസായിക രാസവസ്തുക്കൾ തുടങ്ങിയവ ഉൽപാദിപ്പിക്കുമ്പോൾ പരിഗണിക്കുന്ന ഗുണനിലവാര സംവിധാനമാണ് ജി എൽ

പിയിലെ ഇന്ത്യയുടെ നേതൃത്വം ആഗോള തലത്തിൽ കൂടുതൽ അംഗീകാരം നൽകുന്നുവെന്ന് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി പ്രൊഫ

മാധ്യമ സ്ഥാപനം മുംബൈയിലെ വർളിയിൽ സ്ഥിതിചെയ്യുന്നതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര ഇന്ദിര ബാനർജി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി